മാധ്യമമായി ആത്മനിർഭർ ഭാരത് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കേരളത്തിൽ

സാധ്യത മങ്ങി ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് പോരാട്ടം

ദീൻദയാൽ ഉപാധ്യയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽനടന്ന അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി

അടിസ്ഥാനസൌകര്യ മേഖലയിൽ നടപ്പിലാക്കിക്കൊിരിക്കുന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം അനായാസമാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യ പിന്തുടരുന്ന നയം നമ്മുടെ രാഷ്ട്രീയവ്യവസ്ഥയെ തന്നെ ഉത്കൃഷ്ടമീാക്കു്ന്നു

കഴിഞ്ഞ കുറച്ചൂവ്ർഷങ്ങൾക്കിടെ സങ്കേതികവിദ്യയുടെ സഹായത്തോടെ വലിയൊരു വിഭാഗത്തിന്റെ ജീവിതനിലവാരത്തിൽ മാറ്റങ്ങൾകാണ്ടുവരാൻ സർക്കാരിനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

നാല് ലക്ഷം കോടിയിലധികം രൂപയുടെ ഡിജിറ്റൽ പണമിടപാടുകളാണ് ഓരോ മാസവും രാജ്യത്ത് നടക്കുന്നത് അന്ത്യോദയ എന്ന ആശയത്തിലെ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരുടെ വിശാസം എന്നത് പണ്ഡിറ്റ് ദീൻദയാലിൽ നിന്നുൾക്കൊണ്ടതാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ബിജെപി അധ്യക്ഷൻ ജെപി നദ്ദ പറഞ്ഞു ജൻധൻ യോജന ആയുഷ്മാൻ ഭാരത് യോജന പ്രധാൻമന്ത്രി ആവാസ് യോജന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സൌഭാഗ്യ യോജന ഉജ്ജ്വല യോജന തുടങ്ങിയവയിലെല്ലാം ഈ ആശയം പ്രതിഫലിക്കുന്നുന്നെും ശ്രീ നദ്ദ കൂട്ടിച്ചേർത്തു

ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇട യിലെ സേനാ പിന്മാറ്റം സംബന്ധിച്ച ഉഭയകക്ഷി ധാരണ നടപ്പാ ക്കാൻ ആരംഭിച്ചതായി ശ്രീ

കിഴ്ക്കൻ ലഡാക്കിലെ മറ്റിടങ്ങളിൽ നിന്നുള്ള സേനാ പിൻമുറ്റും സ്ംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് രാജ്യത്തിന്റെ അഖ്യണ്ട്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിച്ച്ഞാബദ്ധമാണ് ഏതു സാഹചര്യവും നേരിടാൻ ഐസ്ന്യ് സജ്ജമാണെന്നും എന്നാൽ ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്മ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താനാകൂ എന്നൂർ ്യൂർ ീ

വ്യാജ വാർത്തകളും ആക്രമണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതരത്തിലുള്ള നടപടി ഉണ്ടായാലും രാജ്യത്തെ നിയമമനുസരിച്ചുള്ള കടുത്ത നടപടികളെ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സമൂഹമാധ്യമങ്ങളെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ടെന്നും അവ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ശാക്തീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

പുതിയ കാർഷിക നിയമങ്ങൾ ചെറുകിട നാമമാത്ര കർഷകരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു പുതിയ ശക്തമായ ഇന്ത്യയ്ക്ക് ബജറ്റ് വഴിവെക്കുമെന്നും കേന്ദ്ര ധനസഹമന്ത്രി അനുരാഗ് ഠാക്കൂർ അഭിപ്രായപ്പെട്ടു രാജ്യത്തിന്റെ സമ്പദ്ഘട്ടന ശക്തിപ്പെടുത്താൻ നിർമ്മാണ മേഖലയിൽ കൂടുതൽ അവസ്സർങ്ങൾ ഉറപ്പാക്കാനും ബജറ്റിന് കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാട്ശിച്ചു കാർഷിക വിളകളുടെ താങ്ങുവില എടുത്തൂകള്യു്മെന്ന് വ്യാജ ആരോപണങ്ങൾ പരത്തി ക്യോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹൃ ആരോപിച്ചു

അന്താരാഷ്ട്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുന്നതിനും അംഗരാജ്യങ്ങൾക്ക് വിജ്ഞാനവും അവസരവും കൈമാറ്റം ചെയ്യാനുമുള്ള ശക്തമായ വേദിയായിരിക്കും ഉച്ചകോടി പ്രദാനം ചെയ്യുകയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു

രാസ് ലീല മൈതാനിൽ നടന്ന റാലിയെ അഭിസംബോധനചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപി അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത ബംഗാൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിചേചർത്തു സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങളെ മുഖ്യമന്ത്രി മമതാ ബാനർജി കബളിപ്പിക്കുകയാണെന്നും കേന്ദ്ര വികസ്മന പദ്ധതികളായ പിഎം കിസാൻ നിധി ആയുഷ്മാൻ ഭാരത് തുടുങ്ങിയവ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ലെന്നും വിമർശിച്ചു മ്യൂത്രമല്ല ബിജെപി അധികാരത്തിലെത്തിയാൽ ഒരാഴ്ച്ചയ്ക്കുള്ളിൽ ഇവയെല്ലാം പ്രാബലൃത്തിലാക്കുമെന്നും അദ്ദേഷ്ഠം കൂട്ടിച്ചേർത്തു

സംസ്ഥാന നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രവർത്തകരെ പൊലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ചാണ് പ്രതിഷേധം സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഇടതു വിദ്യാർത്ഥി യുവജന സംഘടനകളാണ് മാർച്ച് നടത്തിയത് മാർച്ചിന് നേരെ പൊലീസ് ലാത്തിച്ചാർജ്ജ് നടത്തിയതോടെ മധ്യകൊൽക്കത്തയിൽ സ്ഥിതിഗതികൾ വഷളായിരുന്നു

ഇടതുസംഘടനകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ സർക്കാർ ജീവനക്കാരും ഇന്ന് ഹാജരാകണമെന്ന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്

മൂന്ന് സഞ്ചരിക്കുന്ന ലബോറട്ടറികളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ സുശീൽ ചന്ദ്ര രാജീവ് കുമാർ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ടാകും ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തെത്തുന്ന സംഘം നാളെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായും പൊലീസ് നോഡൽ ഓഫീസർമായും കൂടിക്കാഴ്ച നടത്തും തുടർന്ന് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി ചർച്ച നടത്തുന്ന സംഘം വൈകിട്ട് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും കൂടിക്കാഴ്ച നടത്തും തിങ്കളാഴ്ച വരെ സംസ്ഥാനത്തുണ്ടാകുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്

വിഖ്യാതമായ മുഗൾ ഗാർഡൻസ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും

മുഗൾ ബ്രിട്ടീഷ് സംയോജിത വാസ്തുശൈലിയിലുള്ള വൈവിധ്യമാർന്ന അപൂർവ്വയിനം അലങ്കാര പുഷ്പങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രപതി ഭവനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മുഗൾ ഉദ്യാനം

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ മുൻകൂറായി ബുക്കു ചെയ്തവർക്കാണ് പ്രവേശനാനുമതി ഉണ്ടാവുക